കോടിയുടെ കേന്ദ്ര പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഇന്ധനവില ജി

ഉൾപ്പെടുത്തുന്നതിനെ ക്ടേരളം പിന്തുണയ്ക്കില്ലെന്ന് സ്ംസ്ഥാന ധനമന്ത്രി

ബന്ധിപ്പിച്ച് കെ എസ് ആർ ടി സിയുടെ ഫ്ളൈ ബസുക്ൾ ഇന്ന് ഓടിത്തുടങ്ങും

ജെ പി ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ ഇന്ന് സംസ്ഥാനത്ത്

പത്തനംതിട്ട കുളനടയിൽ പ്രധാനമന്ത്രിസുരക്ഷാബീമാ യോജന പദ്ധതിയിൽ നടപ്പാക്കുന്ന സൌജന്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം

കണ്ണന്താനം പറഞ്ഞു

ടിയിൽ ഉൾപ്പെടുത്തുന്നതിനെ കേരളം പിന്തുണക്കില്ലെന്നു ധനമന്ത്രി തോമസ് ഐസക് രാജ്യാന്തര തലത്തിൽ അസംസ്കൃത എണ്ണവില ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ധനവില ഉയർന്നാലും കേരളം ഇനി നികുതിയിളവ് നൽകില്ലെന്നും ധനമന്ത്രി വൃക്തമാക്കി ഇന്ധനവില കുറയ്ക്കാൻ കേന്ദ്രം നികുതി കുറയ്ക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

വ്യാഴാഴ്ച രാവിലെ പദ്ധതി ഇൻഫോപാർക് ടിസിഎസ് കാമ്പസിൽ ഡിജിപി ലോകനാഥ് ബെഹ്റ ഉദ്ഘാടനം ചെയ്യും

എസ്

സിയുടെ പ്രീമിയം സർവ്വീസായ ഫ്ളൈബസുകൾ ഇന്ന് ഓടിത്തുടങ്ങും വൈകുന്നേരം നാല് മണിക്ക് മന്ത്രി എ

നിരണം ഭദ്രാസനത്തിലെ ഫാ ഏബ്രഹാം വർഗീസ് കറുകച്ചാൽ കരുണഗിരി എം ജി ഡി ആശ്രമ അംഗം ഫ ജോബ് മാത്യു തുമ്പമൺ ഭദ്രാസനത്തിലെ ഫാ ജെയ്സ് കെ

ടടടടടടടടടടടട ഹജ്ജ് ഹജ്ജ് തീർത്ഥാടകർക്ക് മുൻ വർഷങ്ങളെക്കാൾ ഹജ്ജ് ക്യാമ്പിൽ മികച്ചു സൌകര്യങ്ങളാണ് ഒരുക്കുന്നതെന്ന് മന്ത്രി കെ

ജലീൽ പറഞ്ഞു നെടുമ്പാശ്ശേരിയിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തോടു ചേർന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കുന്ന കൃാമ്പിന്റെ ഒരുക്കങ്ങൾ മന്ത്രി വിലയിരുത്തി സിയാൽ അക്കാദമിയിലെ സൌകര്യക്കുറവുമൂലം ഇത്തവണ സന്ദർശകർക്ക് ക്യൂാമ്പ് ്സന്ദർശിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു

ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെട്ടി ആദ്യ ഹജ്ജ് വിമാനം നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്ര തിരിക്കും

പാർട്ടി സംസ്ഥാന കോർ കമ്മറ്റി യോഗത്തിലും പാർലമെൻറ് മണ്ഡലങ്ങളുടെ ചുമതലയുള്ള പാർട്ടി പ്രവർത്തകരുടെയും പ്രഭാരിമാരുടെയും സംയുക്ത യോഗത്തിലും അദ്ദേഹം സംബന്ധിക്കും തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ മാവേലിക്കര എന്നീ പാർലമെന്റ് മണ്ഡലങ്ങളുടെ ചുമതലയുള്ള പാർട്ടി പ്രവർത്തകരുടെ കൺവെൻഷൻ ശ്രീ

ലക്ഷദ്വീപിലെ പാർട്ടി നേതാക്കളുമായും അദ്ദേഹം തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തും

ഐ എം കോൺഗ്രസ്സ് ഗവൺമെന്റുകളുടെ ഭരണത്തിലും തണലിലുമാണെന്ന് ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം വി

എറണാക്ടുളം മഹാരാജാസ് കോളേജിൽ എസ്

ഐ പ്രവർത്തകൻ അഭിമൻ്യു് ജിഹാദി ഭീകര വാദികളാൽ കൊല ചെയ്യപ്പെട്ട സംഭവം ് സ്ംസ്ഥാനത്ത് ഏറിവരുന്ന ഭീകരവാദ പ്രവർത്തനത്തിന്റെ അപക്ടക്ർമായ സൂചനയാണെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു ടടടടടടടടടടടട ഹർത്താൽ കൊല്ലം കൊട്ടാരക്കരയിൽ മുഖംമൂടി സംഘം സൈനികന്റെ വീട് ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊട്ടാരക്കര മണ്ഡലത്തിലും പവിത്രേശ്വരത്തും ബിജെപി ഇന്ന് പകൽ ഹർത്താൽ നടത്തുന്നു തെക്കുംപുറം സ്വദേശിയായ സൈനികന്റെ വീടാണ് അടിച്ചുതകർത്തത്

അടുത്തിടെ മുമ്പ് കൊട്ടാരക്കര മുസ്തിം സ്ട്രീറ്റിൽ ഉണ്ടായ സംഘട്ടനത്തിന്റെ തുടർച്ചയാണ് വീടാക്രമണമെന്നാണ് പ്രാഥമികനിഗമനം കൊട്ടാരക്കര താലൂക്കിലും പത്തനാപുരം സ്റ്റേഷൻ പരിധിയിലും നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി

എന്നാൽ ഇന്ന് ഒരു വിഭാഗം മാധ്യമങ്ങൾ സ്തുതിപാഠക സംഘങ്ങളായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൊച്ചിയിൽ സി

മമ്മു എൻഡോവ്മെന്റ് പുരസ്കാരം പ്രൊഫ

സാനുവിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ബി ഡാറ്റയാണ് ഒരു ദിവസം ഇതിലൂടെ ലഭ്യമാക്കുന്നത്